മഹാരാഷ്ട്രയിലെ ഗവൺമെന്റ് രൂപീകരണം എൻ സി

ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും

സ്വന്തമാക്കി ഇന്ത്യൻ വനിതാ ബോക്സിങ് താരങ്ങൾ

രാജ്യത്തിന്റെ വികസനത്തിനും പൌരക്ഷേമത്തിനും ഉതകുന്ന സൃഷ്ടിപരമായ സമ്മേളനമായിരിക്കും ഇത്തവണത്തേത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് ഒരുക്കമാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ചർച്ചയും സംവാദവുമാണ് പാർലമെന്റിന്റെ പരമമായ ധർമ്മമെന്ന് സർവകക്ഷി യോഗ ശേഷം മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി പറഞ്ഞു

കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും ബി ജെപി

ഭരണകക്ഷിയായ എൻ

എയിലെ വിവിധ കക്ഷി നേതാക്കളും സമ്മേളനകാലത്ത് പാർലമെന്റിൽ സ്വീകരിക്ക്കേണ്ട നൃയ്പരിപാടികൾ സംബന്ധിച്ച ചർച്ചകൾക്കായി യോഗം ചേർന്നു

യോഗത്തിൽ സംബന്ധിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഉതകുന്ന വികസന കാര്യങ്ങൾക്കായിരിക്കും ബിജെപി ഈ സമ്മേളന കാലത്ത് പ്രത്യേക ശ്രദ്ധ കൊടുക്കുകയെന്ന് പാർട്ടി നേതാക്കളെ ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

എസ് പ്രതിരോധ സെക്രട്ടറി മാർക് എസ്പറുമായി ശ്രീ

തായ്ലൻഡ് ഉപപ്രധാനമന്ത്രി ജനറൽ പ്രമിത് വോങ് സുമാൻ ജപ്പാൻ പ്രതിരോധ മന്ത്രി താരോ കോൻഡോ ഓസ്ട്രേലിയയുടെ ലിൻഡ റെയ്നോൾഡ്സ് ന്യൂസിലന്റ് പ്രതിരോധമന്ത്രി റോൺ മാർക്ക് എന്നിവരുമായും അദ്ദേഹം ചർച്ച നടത്തി

ബോബ്ഡെ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും രാവിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും സത്യപ്രതിജ്ഞ് ചെയ്തതിനു ശേഷം സുപ്രീം കോടതിയിലെത്തി അദ്ദേഹം ചുമതലയേറ്റെടുക്കും

വിരമിക്കുന്നതിനു മുന്നോടിയായി ചീഫ് ജസ്റ്റീസ് രഞ്ജൻ ഗൊഗോയിയാണ് ജസ്റ്റിസ് ബോബ്ഡെയുടെ പേര് പുതിയ ചീഫ് ജസ്റ്റീസ് സ്ഥാനത്തേക്കു നാമനിർദേശം ചെയ്തത്

പ്രദർശനത്തിനെത്തുന്ന ഏതാനും പ്രമുഖ ചിത്രങ്ങൾ എല്ലാവർക്കും കാണാനായി തുറന്ന വേദി സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങൾ രജിസ്ട്രേഷൻ കൂടാതെ തന്നെ കാണാനാവും

രാജ്യത്തെ പ്രമുഖ ആതുരസേവകരായ റിജോയിസ് ഹെൽത്ത് ഫൌണ്ടേഷനാണ് പുരസ്ക്കാരങ്ങൾ ഏർപ്പെടുത്തിയത്

ഈ ക്ടൂട്ടിക്ൾ വരച്ച ചിത്രങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്

രാഷ്ട്രപതി ഭരണം അവസാനിപ്പിച്ച് മഹാരാഷ്ട്രയിൽ ബദൽ ഗവൺമെന്റ് രൂപീകരിക്കണമെന്നാണ് യോഗത്തിൽ ആവശ്യമുയർന്നത് എൻസിപി കോർ കമ്മിറ്റി അംഗങ്ങളായ അജിക് പവാർ ഛഗൻ ദുജ്ബൽ ജയന്ത് പട്ടീൽ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു കോൺഗ്രസുമായുള്ള ചർച്ചയ്ക്കു ശേഷമേ അടുത്ത തീരുമാനം എടുക്കുവെന്ന് എൻസിപി വക്താവ് നവാബ് മാലിക് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു അതേസമയം ശിവസേനാ മുഖ്യമന്ത്രിയുടെ കീഴിലാകും പുതിയ ഗവൺമെന്റെയും ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നും ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത് വ്യക്തമാക്കി

കർണ്ണാടക ഗവൺമെന്റ് സംഘടിപ്പിക്കുന്ന സമ്മേളനം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക സമ്മേളനമാണ് കർണ്ണാടക മുഖ്യമന്ത്രി ബി

ആഗോള സാങ്കേതിക വിദഗ്ദ്ധരുമായി സംവദിക്കാനും നൂതന സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്താനും മേള വേദിയൊരുക്കും

ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ വിവിധ തലങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും സാമ്പത്തിക സഹകരണം വികസന പങ്കാളിത്തം ഊർജ്ജരംഗത്തെ സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാവും ബിഹാറിലെ ബോധ്ശ്യയും രാജ്ഗീറും സന്ദർശിക്കുന്ന അദ്ദേഹം കൊൽക്കത്തയിലൂർ എത്തും

യുണിസെഫിന്റെ ഗുഡ്വിൽ അംബാസിഡർ കൂടിയായ സച്ചിനെ കാണാനായതിൽ ഏറെ സന്ത്രാ്ഷമുണ്ടെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു കുട്ടികളുടെ അവകാശങ്ങൾക്കും ക്ഷേമത്തിനും വേണ്ടി നേപ്പാൾ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്ന നടപടികളെ സച്ചിൻ അഭിനന്ദിച്ചു

എ

കഴിഞ്ഞ ശനിയാഴ്ച നിലവിൽ വന്ന പുതിയ സംവിധാനത്തിലൂടെ ഇരു രാജ്യങ്ങളിലേയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നത്

ബംഗളുരു ചെന്നൈ ഡൽഹി ഹൈദരാബാദ് കൊൽക്കത്ത മുംബൈ തുടങ്ങിയ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ പുതിയ സൌകര്യം ലഭ്യമാണ് എന്നാൽ പാക് വംശജരായ യു എ ഇ പൌരൻമാർക്ക് ഈ സൌകര്യം അനുവദിക്കുന്നതല്ല

ബുദ്ധമത വിശ്വാസികളുടെ പുണ്യനഗരമാണ് അനുരാധപുര

ശനിയാഴ്ച നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സജിത് പ്രേമദാസയെ പരാജയപ്പെടുത്തി മുൻ പ്രതിരോധ സെക്രട്ടറിയും ശ്രീലങ്കൻ പീപ്പിൾസ് പാർട്ടി സ്ഥാനാർത്ഥിയുമായ ഗോതബായ രജപക്സ വിജയിച്ചിരുന്നു

പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗോതബായ രജപക്സയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിന്ദ്ദ്ഗം അറിയിച്ചു

പുരുഷ വിഭാഗത്തിൽ സെലയ് സോയി അങ്കിത് നർവാൾ എന്നിവരാണ് വെള്ളി നേടിയത്